വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ഉടൻ യോഗം ചേരും

രാജ്യത്ത് കോവിഡ് വാക്സിന് ക്ഷാമം അേരിടുന്നില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ

മുഖ്യമന്ത്രി പിണറായി വിജയന്ക്ക്ന് കോവിഡ് സ്ഥിരീകരിച്ചു

എൽ മത്സരങ്ങൾക്ക് നാളെ ചെന്നൈയിൽ തുടക്കം മുംബൈ ഇന്ത്യൻസ് നാളെ ബംഗളൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും

നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ കോവിഡ് സ്ഥിതി വിലയിരുത്തിയത്

വീഴുക്സിൻ വിതരണം കേന്ദ്രസർക്കാർ തുടർച്ചയായി നിരീക്ഷിച്ച് വര്ിക്യാണെന്ന് അദ്ദേഹം വൃക്തമാക്കി

വാക്സിൻ ലഭിക്കുന്നില്ലും എന്ന ചില സംസ്ഥാനങ്ങളുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയ്ക്കും രാജസ്ഥാനുമാണ് ഏറ്റവും അധികം വാക്സിൻ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ രാജ്യത്ത് പുതിയതായി കോവിഡ് ബാധിക്കുന്നവ രുടെ എണ്ണവും ഉയരുകയാണ്

മഹാരാഷ്ട്ര കർണാടക ഛത്തീസ്ഗഢ് ഡൽഹി തമിഴ്നാട് ഉത്തർ പ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് എന്നീ എട്ട് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട്

മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു

സംസ്ഥാനത്തിന് വരുന്ന മൂന്നാഴ്ചകൾ നിർണായകമാണെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു

മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡിന്റെ അതിതീവ്ര വ്യാപനമുണ്ടാവുകയും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നതുമായ സാഹചരൃത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ്

പ്രതിദിന കോവിഡ് പരിശോധനകൾ വർധിപ്പിക്കാനും സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട്

കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഗുജറാത്തിലും പഞ്ചാ ബിലും ചണ്ഡീഗഡിലുമടക്കം ഇതിനകം രാത്രികാല കർഫ്യൂ നിലവിൽ വന്നിട്ടുണ്ട് ആളുകൾ കൂടുന്ന പരിപാടികൾക്കും ഇവിടങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്

അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യുത്ത് തുടരാൻ ആവില്ലെന്ന നിലപാടാണ് കേന്ദ്രം കോടതിയിൽ സ്വീകരിച്ചത്

പ്രമുഖ നേതാക്കളും താരപ്രചാരകരും ഉൾപ്പെടെ പങ്കെ ടുത്ത അതിശക്തമായ പ്രചാരണത്തിനാണ് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിച്ചത്

ബംഗ്ലാദേശിലെ സേനാ മേധാവികളുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

കരസേനാ മേധാവിയുടെ സന്ദർശനം ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും സായുധസേനകൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വാർത്താകുറിപ്പിലൂടെ അറിയിച്ചു

ഇന്റലിജൻസ് ബ്യൂറോർഡയറക്ടർ അരവിന്ദ് കുമാർ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയ്തും ഐ

ഇന്റ്ലീജ്ൻസ് വിവരങ്ങൾ കൈമാറാമെന്നും തീവ്രവാദത്തിനെതിരെ സംയുക്തമായി പ്രവർത്തിക്കാമെന്നും ചർച്ചയിൽ ധാരണയായി

അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും ഇരു രാജ്യങ്ങളും അപലപിച്ചു

അടുത്ത മൂന്നു വർഷത്തിനുള്ളിൽ ഈ ലക്ഷ്യം കൈവരിക്കുകയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നെതെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു

മാവോയിസ്റ്റുകൾക്ക് സേന ഉചിതമായ തിരിച്ചടി നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സേനയുടെ ആത്മവീര്യം സുപ്രധാനമാണെ ന്നും മാവോയിസ്റ്റുകളുടെ പിടിയിലുള്ള സൈനികന്റെ കാര്യത്തിൽ അടുത്തനീക്കം ഉടൻ തീരുമാനിക്കുമെന്നും ജനറൽ കുൽദീപ് സിംഗ് അറിയിച്ചു

പാക് അധിനിവേശ കശ്മീരിൽ നിന്നും മയക്കുമരുന്നും ആയുധങ്ങളും കടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്

ഉച്ചകോടി ഇരുരാജ്യുങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആക്കം കൂട്ടാൻ സഹായക്ക് മാക്ക് മെന്നാണ് കണക്കാക്കു ന്നത്

മുംബൈ ചെന്നൈ ബംഗളൂരു അഹമ്മദാബാദ് കൊൽക്കത്ത ഡൽഹി എന്നിവിടങ്ങളി ലായാണ് മറ്റ് മത്സരങ്ങൾ നടക്കുക